സ്ത്രീകളുടെയും ശാക്ത്രീക്കർണം ലക്ഷ്യമാക്കിയുള്ള പ്രത്യേക പ്രചാരണ പരിപ്പാടിക്ക് തുടക്കം

നിശബ്ദ വിപ്തവത്തിന് വഴിയൊരുക്കിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

ഗെയിംസിൽ ബോക്സിംഗ് താരം ഗുർവിന്ദർ സിംഗിനും വേഗറാണി ദുതി ചന്ദിനും സ്വർണ്ണം

പൌരത്വ ഭേദഗതി നിയമം പൌരത്വം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും ആരുടെയും പൌരത്വം റദ്ദ് ചെയ്യാനുള്ളതല്ലെന്നും കൊൽക്കത്തയിൽ ബി ജെ പി സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കവെ ശ്രീ

അയൽരാജ്യങ്ങളിൽ നിന്ന് അഭയ്യാർത്ഥികളായി എത്തിയ അവസാനത്തെ ആൾക്കും പൌരത്വം നെൽകുന്നതുവരെ സർക്കാർ പിന്നോട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞുകൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത്

മോദി സർക്കാറിന്റെ സുപ്രധാന തീരുമാനങ്ങളെക്കുറിച്ച് പരാമർശിക്കവെ അയോധ്യയിൽ രാമക്ഷേത്രം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മമത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമബംഗാൾ സർക്കാർ എല്ലാ രംഗങ്ങളിലും തികഞ്ഞ പരാജയമാണെന്ന് ശ്രീ

വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനായുള്ള പാർട്ടിയുടെ പ്രത്യേക പ്രചാരണ പരിപാടികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു നേരത്തെ ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മന്ദിര സമുച്ചയം കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്യവെ ആഭ്യന്തര സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കും രാജ്യത്തിലേയ്ക്ക് അതിക്രമിച്ച് കടക്കുന്നവർക്കും തക്കതായ മറുപടി നൽകുമെന്ന് ശ്രീ

ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ആരെയും ആക്രമിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജൃം സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയ്ക്ക് യശസ്സ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു

ഭീകരപ്രവർത്ത്യാട്ടി നേരിടുന്ന കാര്യത്തിൽ പുതിയ സാങ്കേതികവിദ്യയും പരിശ്രീലിന് െരീതികളും തന്ത്രങ്ങളും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രിക്കുറഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചു പിപിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെയും ഇട്ടതും പാർട്ടികളുടെയും നേതൃത്വത്തിൽ കിഴക്കൻ ഡൽഹിയിൽ ഉണ്ടായ അക്രമസംഭവങ്ങളിൽ പ്രതിഷേധിച്ച് പ്രകടനങ്ങൾനടന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പെൺകുട്ടികളേയും വനിതകളെയും വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് പ്രത്യേക പ്രചാരണ പരിപാടി ആവിഷ്ക്കരിക്കുന്നത്

സംഘർഷ സംഭവങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ രണ്ട് വസ്തുതാ അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകാൻ കമ്മീഷന്റെ അന്വേഷണ വിഭാഗം ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകി വടക്കുകിഴക്കൻ ഡൽഹിയിലെ പോലീസ് കൺട്രോൾ വിഭാഗത്തിൽ സന്ദർശനം നടത്തുന്ന സംഘങ്ങൾ അക്രമത്തിനിരയായവരിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും തെളിവെടുപ്പ് നടത്തും

രാജ്യത്തിന്റെ അഭിമാനിക്കാവുന്ന സാങ്കേതിക വിദൃയിലധിഷ്ഠിതമായു പൂ പാതു ധനകാരൃനിർവ്വഹണം എല്ലാ സിവിൽ അക്കൌന്റുമാരുടെയും ശ്രമഫലമാണെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ഇത് പിഴപ്പലിശ ഒഴിവാക്കുന്നതിന് നികുതി ദായകർക്ക് അവസരമൊരുക്കും

സംസ്മാന്നത്ത് സമാധാനം പാലിക്കാൻ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് ്കെ സാംഗ്മ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

വാടക ഗർഭപാത്ര നിയന്ത്രണബിൽ ഉൾപ്പെടെയുള്ള സൂപ്രധാന ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരും

മെക്സിക്കോയിലും സാൻമെറിനോയിലും ആദ്യ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

അതിനിടെ കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതിസുദൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിലയിരുത്തി കേന്ദ്ര സംസ്ഥാനതലങ്ങളിൽ ബന്ധപ്പെട്ട ആരോഗൃ മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രോഗ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു

മെച്ചപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങളാണ് ഏതൊരു മേഖ്യില്യുട്ടെയും പുരോഗതിയിൽ പ്രധാനപങ്കുവഹിക്കുന്നതെന്ന് ശ്രീ സ്ട്ർബാനന്ദ സോനോവാൾ പറഞ്ഞു പ്രധാനമന്ത്രി നള്രേന്ദ്ര്മോദി കഴിഞ്ഞ വർഷമാണ് പാലത്തിന് തറക്കല്ലിട്ടത്